ജലസംബന്ധമായ പ്രശ്നങ്ങൾ അടൽ ബിഹാരി വാജ്പേയിയുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നവയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പഞ്ചായത്ത് തലത്തിലെ ഭൂജല വിനിയോഗവും മിതമായ ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുകയാണ് അടൽ ഭൂജൽ പദ്ധതി ലക്ഷ്യമിടുന്നത്

ഗുജറാത്ത് ഹരിയാന കർണ്ണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ അഞ്ച് കൊല്ലം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭാ തീരുമാനുങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ്ട മിന്റ്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു പദ്ധതി വഴി കർഷകരുടെ പ്പരുമാനത്തിൽ വർദ്ധനയുണ്ടാകുമെന്നും മന്ത്രി പ്പറഞ്ഞു

ഒരു റിപ്പോർട്ട്

വാജ്പേയ് സമാധി സ്ഥലമായ സദൈവ് അടലിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഇന്ന് രാവിലെ പുഷാപർച്ചന നടത്തി ആഭ്യന്തരമന്ത്രി പ്രതിരോധമന്ത്രി എന്നിവരുൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു

അടൽ ബിഹാരി മെഡിക്കൽ സർവ്വകലാശാലയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും

ജനങ്ങൾ നൽകുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാവും ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നതെന്നും ഇതിനായി ബയോമെട്രിക് വിവരങ്ങളോ മറ്റ് രേഖകളോ നൽകേണ്ടതില്ലെന്നും കേന്ദ്ര മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രവാർത്താവിതരണ പ്രക്ഷേപണമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി മൂന്ന് സേനാ വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുള്ള പ്രതിരോധ സേനാ മേധാവിയുടെ നിയമനത്തിനും കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകി ഫോർസ്റ്റാർ ജനറൽ പദവിയോട് കൂടിയുള്ള പ്രതിരോധ സേന മേധാവി പ്രതിരോധ മന്ത്രാലയത്തിനു കീഴിലുള്ള സേനാകാര്യ വകുപ്പിന്റെ മേൽനോട്ടം വഹിക്കും

റെയിൽവേയിലെ എട്ട് ഗ്രൂപ്പ് എ സർവീസുകൾ യോജിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് രൂപീകരിക്കാൻ അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ അറിയിച്ചു

ന്യൂഡൽഹിയിൽ നടന്ന ആകാശവാണി വാർഷിക പുരസ്കാരദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ടൂടുതൽ വൃക്തമായ പ്രക്ഷേപണം സാധ്യമാക്കുന്ന ഡിജിറ്റൽ ഭർഡിയോ കൂടുതൽ ശ്രോതാകളിലേക്ക് എത്തിക്കാനും സ്ക്ധീക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി

കന്യാകുമാരി വിവേകാന്ന്ദ സ്മാരകത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനാണ് രാഷ്ട്രപതി എത്തുന്നത് പ്രത്യേക വിമാനത്തിൽ എത്തുന്ന അദ്ദേഹം ഹെലികോപ്ടറിൽ കന്യാകുമാരിയിലേക്ക് തിരിക്കും നാളെ രാവിലെ കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രം സന്ദർശിച്ച ശേഷം തിരിച്ച് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം ഡൽഹിക്കു മടങ്ങും

ഗവർണ്ണർ ദ്രൌപതി മുർമുവിനെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഇന്നലെ രാത്രി തന്നെ സോറൻ ഉന്നയിച്ചിരുന്നു ഝാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നിയമസഭാ കക്ഷി നേതാവായി ഹേമന്ത് സോറൻ ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഝാർഖണ്ഡ് തിരഞ്ഞെടുപ്പിൽ ജെ

എം

സഖ്യം വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയം നേടിയത്

ആന്ധ്രപ്രദേശിൽ പശ്ചിമ ഗോദാവരി ജില്ലയിലെ എൻ ഐ റ്റിയുടെ ആദ്യ ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി

ഐ

ഐ റ്റികളും നവീന ആശയങ്ങളുടെ കേന്ദ്രമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു

ജെ

ജെ

പിമാർ എം

എമാർ ബി ജെ പി സംസ്ഥാനഭാരവാഹികൾ തുടങ്ങിയവർ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും

ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിര കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും നടന്നു റോമിലെ വത്തിക്കാനിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവർക്കും ആശംസകൾ നേർന്നു ഗോവയിൽ ക്രിസ്മസ് പുതുവത്സര ആഷോഷങ്ങൾക്കായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ പേർ എത്തി ഓൾഡ് ഗോവയിലും പനാജിയിലുമുള്ള ക്രിസ്തീയ ദേവാലയങ്ങളിൽ നടന്ന തിരുകർമ്മങ്ങളിൽ അനേകം വിശ്വാസികൾ പങ്കെടുത്തു

തിരുവനന്തപുരം പാളയം പള്ളി ഉൾപ്പെടെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന വിശേഷ പ്രാർത്ഥനകളിൽ ഒട്ടേറെ വിശ്വാസികൾ പങ്കെടുത്തു വൈദ്യുതദീപാലങ്കാരങ്ങളും നക്ഷത്രവിളക്കുകളും ക്രിസ്മസ് ട്രീകളും ഒരുക്കി പൊതുസ്ഥലങ്ങളും ദ്ദേവ്ട്ടുള്ളും ക്രിസ്മസ്സിനെ വരവേറ്റു ക്രിസ്മസ് സ്ക്മിറ്റ്ൻങ്ങളും ആശംസകളും കൈമാറിയും വിഭവ സമൃദ്ധമായ സ്ദ്യുക്ളരുക്കിയും വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിൽ മുഴുകീയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണ്

വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ക്രിസ്മസ് ദിനാശംസകൾ നേർന്നു മാനുഷികതയുടേയും സാഹോദര്യത്തിന്റേയും കാരുണ്യത്തിന്റേയും സന്ദേശമുയർത്തിയാണ് ക്രിസ്തുദേവന്റെ തിരുപിറവി ആഘോഷിക്കുന്നതെന്ന് രാഷ്ട്രപതി ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു

എല്ലാ മലയാളികൾക്കും മുഖ്യമന്ത്രി ക്രിസ്മസ് ആശംസ നേർന്നു ശാന്തിയും സമാധാനവും ആഹ്ലാദവും നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

ഈ ആഴ്ച മുഴുവൻ ശൈത്യ തരംഗം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും പകൽ താപനില പൂജൃം ഡിഗ്രി സെൽഷ്യസ് ആയി തുടരുന്നു

ഹൃരിയാനയുടെ ഭാക്കർ വനിതകളുടെ എയർ പിസ്റ്റൂൾ ഇന്ത്തിലാണ് നാല് സ്വർണം നേടിയത്

മനു ഭാക്കറും യശസ്ഥിനിയും അടുത്തവർഷം നടക്കുന്ന ടോക്കിയോ ഒളിംമ്പിക്സിലേക്ക് നേരത്തേ തന്നെ യോഗൃത നേടിയിട്ടുണ്ട്